പി ബാലസുബ്രഹ്മണ്യത്തിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ രാജ്യം ഇന്ന് വിട നൽകും

എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് തുടർച്ചയായ രണ്ടാം ജയം

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ വഴിയാണ് ഇത്തവണ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി ചേരുന്നത് കോവിഡിനെ പ്രതിരോധിക്കാൻ ബഹുമുഖ പദ്ധതികളാണ് ഇത്തവണ സമ്മേളനത്തിന്റെ അജണ്ട രുമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ചിന്തകൾ ജനങ്ങളുമായി പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻകീ ബാത് നാളെ

ദൂരദർശനും മൻകീ ബാത് സംപ്രേഷണം ചെയ്യും രുര അന്തരിച്ച പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനും നടനുമായിരുന്ന എസ്

ബാലസുബ്രഹ്മണ്യത്തിന് രാജ്യം പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വിട നൽകും

രുമ സംസ്ഥാനത്ത് ആശങ്കയുയർത്തി കോവിഡ് വ്യാപനം വർധിക്കുന്നു

രുമ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ ജാഗ്രത ആവശ്യമായി വരുമെന്ന് മന്ത്രി എ

കോവിഡ് പ്രതിരോധ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രോഗലക്ഷണങ്ങളില്ലാത്ത കോവിഡ് രോഗികൾക്ക് വീട്ടിൽ തന്നെ ആരോഗ്യവകുപ്പിന്റെ മേൽ നോട്ടത്തിൽ നിരീക്ഷണത്തിൽ കഴിയാമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു രോഗലക്ഷണങ്ങളില്ലാത്തവർക്കും ചെറിയ രോഗലക്ഷണങ്ങൾ മാത്രം ഉളളവർക്കും വീടുകളിൽ ഒരു മുറിയിൽ നിരീക്ഷണത്തിൽ കഴിയാമെന്നും ഡി

രുഭ കോവിഡ് കാലത്ത് ഓട്ടോറിക്ഷകളിൽ സുരക്ഷിത യാത്രയൊരുക്കാൻ തൃശൂർ സിറ്റി പൊലീസും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കൈകോർക്കുന്നു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ക്യാബിൻ നിർമ്മിച്ച് ഡ്രൈവർമാർക്കും യാത്രക്കാർക്കുമിടയിൽ അകലം തീർത്താണ് സുരക്ഷിതയാത്രയൊരുക്കുന്നത്

മുഹമ്മദ് റഫീഖ് വർഗീസ് ജോസഫ് വിനോദ് മാധവൻ എന്നിവരാണ് അറസ്റ്റിലായത്

കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാവാൻ സാധ്യതയുണ്ട്

ഔദ്യോഗിക കണക്കനുസരിച്ച് ജില്ലയിൽ എട്ടു പേർ കോവിഡ് മൂലം മരിച്ചു

ചൈനയിൽ കൊറോണ വൈറസ് കണ്ടെത്തി ഒമ്പത് മാസത്തിനകം ലോകത്ത് മരണമടഞ്ഞവരുടെ എണ്ണം പത്ത് ലക്ഷത്തോട് അടുക്കുകയാണ്

കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ രാജ്യങ്ങളും വ്യക്തികളും ഒത്തൊരുമിക്കുന്നില്ലെങ്കിൽ ഈ സംഖ്യ ഇരട്ടിയാകുമെന്നത് സാങ്കല്പികമല്ലെന്നും ലോകാരോഗ്യ സംഘടന ഡയറക്ടർ മൈക്കൽ റയാൻ അറിയിച്ചു

കോഴിക്കോട് കണ്ണൂർ കോർപ്പറേഷനുകളിൽ മറ്റന്നാളും കൊച്ചി തൃശ്ശൂർ കോർപ്പറേഷനുകളിൽ അടുത്ത ബുധനാഴ്ചയും തിരുവനന്തപുരം കൊല്ലം കോർപ്പറേഷനുകളിൽ അടുത്ത മാസം ആറിനുമാണ് നറുക്കെടുപ്പ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അടുത്ത മാസം ഒന്നിലേയ്ക്ക് മാറ്റിയതായും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു രുര ലൈഫ്മിഷനെ സംബന്ധിച്ച് കോൺഗ്രസ് എം എൽ എയുടെ പരാതിയിൽ കേസെടുത്ത സി ബി ഐ നടപടി അസാധാരണവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ ആരോപിച്ചു ലൈഫ്മിഷനുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷിക്കുമെന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ പരസ്യ പ്രസ്താവന നടപ്പിലാക്കിയമട്ടിലാണ് സി ബി

കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ട് ഏതറ്റം വരെ പോയിരിക്കുന്നു എന്നതിന്റെ തെളിവാണിതെന്നും പാർട്ടി അഭിപ്രായപ്പെട്ടു ദ്ദേ ലൈഫ് മിഷൻ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തതോടെ പദ്ധതിയിലെ അഴിമതിയും ക്രമക്കേടും വ്യക്തമായതായി പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു

ഇനിയെങ്കിലും മുഖ്യമന്ത്രി രാജിവെക്കാൻ തയ്യാറാകണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു

ബി ഐ അന്വേഷണം സ്വാഗതാർഹമെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ലൈഫ് മിഷൻ പദ്ധതിയിൽ തുടക്കം മുതൽ മുഖ്യമന്ത്രി ഒളിച്ചുകളി നടത്തുകയായിരുന്നുവെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു നിരാലംബരും നിരാശ്രയരുമായ പാവങ്ങൾക്ക് വീടു വച്ചുനൽകുന്ന പദ്ധതിയിലാണ് ഇത്രയും വലിയ അഴിമതി നടത്തിയതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു രമേ ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപ്പിറ്റൽസിന് തുടർച്ചയായ രണ്ടാം ജയം

മഹേന്ദ്ര സിങ് ധോണി നയിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ സീസണിലെ രണ്ടാം പരാജയമാണിത് ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അബുദാബിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും

ചെയർമാനും മാനേജിങ് ഡയറക്ടറുമായ അലി അസ്ഗർ പാഷ കൊച്ചിയിൽ അറിയിച്ചതാണിത് രുമ ജീവിത ശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നത് ലക്ഷ്യമിട്ട് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാന്റേർഡ്സ് അതോറിറ്റി രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കൊച്ചിയിൽ ജില്ലാ കലക്ടർ എസ് സുഹാസ് ലോഗോ പ്രകാശനം ചെയ്തു

നല്ലതു കഴിക്കാം നാളേക്കായി ഒരുങ്ങാം എന്നതാണ് പദ്ധതിയുടെ മുദ്രാവാക്യം രേര ഗാർഹികമേഖലയിൽ ഉൾപ്പടെ ഗുണനിലവാരമില്ലാത്തതും അപകടസാധ്യതയുള്ളതുമായ രീതിയിൽ വൈദ്യുത കണക്ഷനുകൾ സ്ഥാപിക്കുന്നത് ശ്രദ്ധയിൽപെട്ടാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കൊല്ലം ജില്ലാ കലക്ടർ ബി അബ്ദുൽ നാസർ അറിയിച്ചു വൈദ്യുത അപകടങ്ങളെക്കുറിച്ചും ലഘൂകരണ നിർദേശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ കൂടിയ ഗൂഗിൾ മീറ്റ് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രുദ മൂന്നാറിൽ ഫയർ ആന്റ് റെസ്ക്യു വിഭാഗത്തിനു പുതിയ കെട്ടിടം നിർമിക്കാൻ നിർദേശം ഗവൺമെന്റിന്റെ അനുമതിക്കു സമർപ്പിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു